സ്പീക്കർക്ക് സുപ്രീം കോടതി നിർദ്ദേശം കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും

അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയ്ക്ക് ജാമ്യം

ആദ്യസെമീഫൈനലിൽ ലോക നമ്പർ വൺ താരം നൊവാക് ജോക്കോവിച്ച് റോബർട്ടോ ബാറ്റിസ്റ്റാ പോരാട്ടം പുരോഗമിക്കുന്നു

എ അയോഗ്യത

സുപ്രീംകോടതി ചൊവ്വാഴ്ച വീണ്ടും വിഷയം പരിഗണിക്കുന്നത് വരെ എം എൽ എ മാരുടെ രാജിക്കത്തുകളിൽ തീരുമാനമെടുക്കരുതെന്നും സ്പീക്കർ കെ ആർ രമേഷ് കുമാറിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

സ്പീക്കർ കോടതിയുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു വിമത എം എൽ എ മാരുടെ രാജിയിന്മേൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശത്തിനെതിരെ സ്പീക്കർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കെയാണ് പ്രതികരണം തങ്ങൾ നൽകിയ രാജിയിന്മേൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും രാജി അംഗീകരിക്കുന്നതിൽ നിന്ന് സ്പീക്കർക്ക് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നും എം

അതേസമയം വിഷയത്തിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ പരിഗണിച്ചശേഷം മാത്രമേ തീരൂമാനം കൈക്കൊള്ളാൻ ആകൂ എന്ന് സ്പീക്കർക്കുവേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു അതിനിടെ കർണാടകയിൽ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് നിയമസഭയിൽ വിശ്വാസവോട്ടെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു

സന്നദ്ധ സംഘടനയാണ് വിഷയത്തിൽ അപ്പീൽ സമർപ്പിച്ചത്

വാഗാ അതിർത്തിയിൽ നടക്കുന്ന ചർച്ചയിൽ ഇടനാഴി സംബന്ധിച്ച നടപടിക്രമങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും വിഷയമാകും നടക്കുന്ന മറ്റന്നാൾ ഏറെ പ്രതീക്ഷയാണുള്ളതെന്നും സ്ട്രീറ്റോ പോയിന്റിലെ സംയോജനം സംബന്ധിച്ചും തീർത്ഥാടകരുട്ട എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചുക വിശദമായി ചർച്ച ചെയ്യുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു യാത്രക്കാർക്കുള്ള കെട്ടിട്ടത്തിന്റെ നിർമ്മാണപ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു

രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയിന്മേൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി ഈ നേട്ടത്തിനായി ബജറ്റിലെടുത്ത നടപടികൾ കേന്ദ്രമന്ത്രി വിശദീകരിച്ചു സാമ്പത്തിക ഏകീകരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിക്ഷേപം ഉയർത്താനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് കൃഷി സാമൂഹിക ആരോഗ്യ മേഖല എന്നിവയിലെ നിക്ഷേപം ഉയർത്തുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ബജറ്റിൽ തെളിയുന്നത് കാർഷിക മേഖലയെ ഒന്നടങ്കം വീണ്ടെടുക്കുന്നതിനാണ് എൻ

എ ശ്രമിക്കുന്നതെന്നും കേന്ദ്രധനമന്ത്രി വ്യക്തമാക്കി

അടിസ്ഥാന സൌകര്യ വികസനത്തിലാണ് കേരളം ഇ പ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നത്

കർഷക ഉത്പാദക സംഘങ്ങളെ നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ സഹായിക്കുന്നതിലൂടെ വയനാടിന്റെ മുഖഛായ മാറ്റാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു

ദന്തേവാദാ ജില്ലയിലെ ദബ്ബാ വനപ്രദേശത്ത് മാവോയിസ്റ്റുകളും ജില്ലാ റിസർവ് ഗാർഡും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ആണ് സംഭവം

കൊല്ലപ്പെട്ടയാളെ പിടികൂടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി എം

ഭീമ മാണ്ഡവി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നതായി പൊലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു

സംസ്ഥാനത്ത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള സാഹചര്യം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള കമ്മറ്റിയിലേക്ക് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ നിയമിക്കുമെന്നും ഹരിയാന ഗവൺമെന്റും താമസം കൂടാതെ ഇതേ ദിശയിൽ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്ന് ശ്രീമന്ദിറിലേക്ക് പ്രത്യേകം രഥങ്ങളിൽ വിശുദ്ധ ത്രിമൂർത്തികളുടെ മടങ്ങി വരവാണ് ബഹുദ യാത്ര നാളെ സുനബേഷ ചടങ്ങുകൾ നടക്കും ത്രിമൂർത്തികളെ തങ്ക ആഭരണം അണിയിക്കുന്ന ചടങ്ങാണിത്

നാളെയാണ് വനിതാ ഫൈനൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചും സ്പാനിഷ് താരം റോബർട്ടോ ബാറ്റിസ്റ്റാ ആഗട്ടും തമ്മിലുളള ആദ്യ സെമിഫൈനൽ ടെന്നീസിലെ സൂപ്പർ താരങ്ങളായ പുരോഗമിക്കുന്നു

എട്ട് തവണ ചാമ്പ്യനാണ് റോജർ ഫെഡറർ നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ യു എസിന്റെ സെറീന വിലൃംസ് റുമാനിയൻ താരം സിമോണ ഹാലപ്പിനെ വിംബിൾഡൺ ഫൈനലിൽ എത്തുന്ന നേരിടും